കാശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥതയ്ക്ക് ഒരു സാധൃതയുമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പ്രശ്നങ്ങൾ ഇരു രാജൃങ്ങൾക്കും ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കാനാവുമെന്നും പ്രധാനമന്ത്രി

മുൻ ധനമന്ത്രി പി ചിദംബരത്തിന്റെ സി ബി ഐ

ഓപ്പൺ ടെന്നീസ് മത്സരങ്ങൾ ഇന്ന് ന്യൂയോർക്കിൽ തുടങ്ങും

അയൽരാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതേ ഉള്ളൂവെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് കുറച്ചു കാലം മുമ്പ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായി ടെലഫോണിൽ സംസാരിച്ചപ്പോൾ ഇരു രാജൃങ്ങളിലുമുള്ള ദാരിദ്ര്യവും മറ്റു വിഷയങ്ങളും താൻ ചൂണ്ടിക്കാട്ടിയിരുന്നെന്നും ജനക്ഷേമത്തിനായി പറഞ്ഞിരുന്നു കശ്മീർ വിഷയം പ്രധാനമന്ത്രി മോദിയുമായി സംസാരിച്ചെന്നും ഉഭയകക്ഷി പ്രശ്നമായ ഇത് ഇന്ത്യക്കും പാകിസ്ഥാനും ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം ട്രംപുമായുള്ള പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയിൽ കശ്മീർ വിഷയമായില്ലെന്ന് വിദേശകാര്യസെക്രട്ടറി വിജയ് ഗോഖലെ പറഞ്ഞു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബൊറീസ് ജോൺസണുമായി നടന്ന ചർച്ചയിലും കശ്മീർ വിഷയമായില്ല ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായി നടന്ന ചർച്ച പ്രധാനമായും കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചായിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത്

ന്യൂഡൽഹിയിൽ സിറ്റി ഗ്യാസ് വിതരണ ലേലത്തിന്റെ പത്താം വട്ട പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി പ്രസ്സാരിക്കുകയായിരുന്നു കേന്ദ്ര പെട്രോളിയം മന്ത്രി

ഉൌർജ്ജ ഉപയോഗത്തിൽ ലോകത്ത് മൂന്നാം സ്ഥാനമാണ് ഇന്ത്യയ്ക്കുള്ളത് ഒരു ദശാബ്ദത്തിനുള്ളിൽ ഒന്നാം സ്ഥാനത്തെത്തുമെന്നും ശ്രീ

വിശ്വാസയോഗ്യമായ അധിക ചെലവില്ലാത്ത ശുദ്ധമായ ഇന്ധനം എല്ലാവർക്കും ലഭ്യമാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം

സമ്മർദിത പ്രകൃതിവാതകം ഇന്ധനമാക്കുന്ന വാഹനങ്ങളുടെ വിൽപ്പന കൂടുതൽ വിപുലമാക്കാൻ ഓട്ടോമൊബൈൽ കമ്പനികൾ ശ്രദ്ധ ചെലുത്തണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു അതിനായി വാഹനങ്ങൾ ഇനിയും ആധുനികവത്കരിക്കണം

ഇലക്ട്രോണിക് വാഹന സാങ്കേതികവിദ്യയിൽ മികവ് പുലർത്തുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കർഷകർക്കായുള്ള സാങ്കേതിക ന്റ്വീകരണ സെമിനാറിനെ ന്യൂഡൽഹിയിൽ അഭിസംബോഗ്ഗന ചെയ്യവേയാണ് മന്ത്രി ഇങ്ങനെ പറഞ്ഞത്

ഗ്രാമങ്ങളും പാവപ്പെട്ടവരും കർഷകരും പ്രധാനമന്ത്രിയു്ടെ ചിന്തകളിലുണ്ട്

എക്സ് മീഡിയ കേസിൽ പി ചിദംബരത്തിന്റെ സി ബി ഐ

കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡി കാലാവധി നീട്ടി നൽകണമെന്ന സി ബി ഐ

എക്സ് മീഡിയ കേസിൽ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരത്തിന് അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം സുപ്രീം കോടതി നാളെ വരെ നീട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന കേസിലാണ് നടപടി മുൻകൂർ ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെ പി ചിദംബരം സമർപ്പിച്ച ഹർജിയിൽ നാളെ വാദം തുടരുമെന്ന് ജസ്റ്റിസുമാരായ ആർ ബാനുമതി എ

ബൊപ്പണ്ണ എന്നിവരടങ്ങുന്ന ബ്യെഞ്ച് വ്യക്തമാക്കി

കശ്മീർ ് താഴ്വരയിലെ പൊലീസ് സ്റ്റേഷൻ പരിധിയിൽ പകൽ സമയത്തുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്

അതേ സമയം ദക്ഷിണ കശ്മീരിലെ അനന്തനാഗ് ജില്ലയിൽ വാഹനത്തിനുനേരെ കല്ലേറുണ്ടായതിനെ തുടർന്ന് ഡ്രൈവർ മരിച്ചു സംഭവത്തിൽ രണ്ടു പേരെ പൊലീസ് അറസ്റ്റ് ചെയ്തു

മഴ തെരച്ചിലിന് തടസ്സമായതിനാൽ വലിയ മഴ മാറിയതിനു ശേഷം തെരച്ചിൽ നടത്തണമെന്ന് കാണാതായവരുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു

അഞ്ചുപേരെ ഇനിയും കണ്ടെത്താനുണ്ട്

ഓപ്പൺ ഗ്രാൻഡ് സ്താം ടെന്നീസ് മത്സരങ്ങൾക്ക് ഇന്ന് ന്യൂയോർക്കിൽ തുടക്കമാകും ഈ സീസണിലെ അവസാന ഗ്രാൻഡ് സ്ലാം ആയ യു

ഓപ്പണിനിൽ ലോക ഒന്നാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ജോക്കോവിച്ചും അഞ്ച് തവണ ചാമ്പ്യനായ റോജർ ഫെഡററും ഗ്രാൻഡ് സ്താം കിരീടത്തിനായുള്ള പോരാട്ടങ്ങൾ തുടരും

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത്

ന്യൂനപക്ഷ മന്ത്രാലയിത്തിൽ നിന്നുള്ള സംഘം സ്കൂളുകൾ തുറക്കുന്നതും നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ആശുപത്രികൾ എന്നിവ ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും വികസനവുമായി ബന്ധപ്പെട്ട സൌകര്യങ്ങൾ വിശകലനവും ചെയ്യും ഇൌ മേഖലകളിലെ സാമൂഹ്യ സാമ്പത്തിക വികസന സാധ്യതകളെ കുറിച്ച് സമഗ്ര റിപ്പോർട്ടും തയാറാക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

പാർട്ടി മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ ധർമ്മേന്ദ്രപ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്

മൻമോഹൻ സിംഗിന് നൽകിയിരുന്ന എസ്

ജി

ഒന്നിലധികം സുരക്ഷാ ഏജൻസികളുടെ വിലയിരുത്തലിനെ തുടർന്നാണിത് എന്നാൽ ഡോ

കേന്ദ്ര രാജ്യരക്ഷ മന്ത്രാലയവും ഡേറ്റാ പാറ്റേൺ പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിലാണ് കരാറിൽ ഏർപ്പെടുന്നത്